ഇതനുസരിച്ച് കെ സൂരേന്ദ്രന് പത്തനംതിട്ടയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാൻ പാടില്ല ചിത്തിര ആട്ട വിശേഷ ദിവസം ശബരിമലയിൽ സ്ത്രീയെ തടഞ്ഞ കേസിലാണ് സുരേന്ദ്രന് ജാമ്യം സുരേന്ദ്രന് ജാമ്യം അനുവദിക്കുന്നത് പോലീസ് ഹൈക്കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു

നടിയും സംവിധായികയുമായ നന്ദിതാ ദാസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ തുടങ്ങിയവർ ച്ചടങ്ങിൽ പങ്കെടുക്കും